സ്ഥാനാർത്ഥികൾ പത്രിക നൽകി പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്

ശതമാനം സബ്സിഡി നൽകി സ്റ്റാമ്പ് ഡ്യൂട്ടി ഒഴിവാക്കാൻ തീരുമാനം

കരുതൽ ശേഖര പരിധി ഗവൺമെന്റ് പുതുക്കി നിശ്ചയിച്ചു

രാജ്യത്തെ വിദൂര പ്രാദേശിക മേഖലകളിലെ വിമാന സർവ്വീസ് വിപുലപ്പെടുത്തുകയാണ് ലക്ഷ്യം വടക്ക് കിഴക്കൻ മേഖല മലയോരങ്ങൾ ധാരാളമുള്ള സംസ്ഥാനങ്ങൾ ജമ്മു കശ്മീർ ലഡാക്ക് ദ്വീപുകൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് നാലാം ഘട്ട പ്രവർത്തനങ്ങളെന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം അറിയിച്ചു

ഉൾനാടൻ മേഖലകളിൽ വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾക്കും തൊഴിൽ സൃഷ്ടിക്കുന്നതിനും ഉഡാൻ പദ്ധതി പ്രോത്സാഹനം നൽകുമെന്നാണ് പ്രതീക്ഷ

പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും വെള്ളിയാഴ്ച വരെ പത്രികകൾ പിൻവലിക്കാം ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതമായി

മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം വൈദ്യുതി ഗതാഗത സൌകര്യം തുടങ്ങിയ ഭൌതിക സാഹചര്യങ്ങൾ ലഭ്യമാക്കുന്നതിനും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി നോയിഡയിൽ ഫ്ളാറ്റ് നിർമ്മാതാക്കൾക്ക് നിയമ നടപടികൾ കാരണം അവരുടെ പദ്ധതികൾ നീണ്ടുപോയ കാലയളവിലെ പലിശയിൽ ഇളവ് നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു

സി വിവരങ്ങൾ കമ്പനി നിയമം അനുസരിച്ച് സമർപ്പിക്കാത്ത അംഗങ്ങളിൂടെ ഡി

എൻ അഥവാ ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഷ്ട്രീർത്ത്നരഹിതമാക്കിയെന്ന് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം അറിയ്യിച്ചു

എന്നുകൾ റദ്ദാക്കളപ്പെട്ടത്തിയി വകുപ്പുമന്ത്രി അനുരാഗ് താക്കൂർ പറഞ്ഞു രാജ്യസഭയിൽ ് ചോദ്യത്തിന് രേഖാമൂലം മറുപടി നൽകുകയായിരുന്നു മന്ത്രി കൃഷ്ണി കാര്യ മന്ത്രാലയമാണ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്ക് ഡിക്കുഎ്എ്ൻ നൽകുന്നത്

റസിഡൻഷ്യൽ സർവകലാശാലകൾ ഉൾപ്പെടെയുള്ള സർവകലാശാലകൾ സാങ്കേതിക സർവകലാശാലകൾ റസിഡൻഷ്യൽ കോളേജുകൾ ഗവൺമെന്റ് സർവകലാശാലകൾ എന്നീ വിവിധ വിഭാഗങ്ങളിലാണ് അവാർഡുകൾ നൽകുന്നത് സ്വച്ഛതാ മേഖലയിൽ വിദ്യാർത്ഥികൾ മാറ്റത്തിന്റെ പ്രതിനിധികളായി മാറുകയാണെന്ന് മാനവ വിഭവശേഷി വികസന മന്ത്രി രമേശ് പൊക്രിയാൽ നിഷാങ്ക് പറഞ്ഞു വിദ്യാർത്ഥി ശൌചാലയ അനുപാതം ഹോസ്റ്റൽ ശുചിത്വം ഹോസ്റ്റൽ പാചകശാലയുടെ ശുചിത്വം ശുദ്ധജല ലഭ്യത ജലസംരക്ഷണ മാർഗ്ഗങ്ങൾ ക്യാമ്പസ്സിന്റെ പച്ചപ്പ് ശുചിത്വത്തിനായുള്ള ഭരണനിർവ്വഹണ ചുമതല എന്നീ വിവിധ ശുചിത്വ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ശുചിത്വ പരിപാലനത്തിലെ സ്ഥാനം നിർണ്ണയിക്കുന്നത്

ഇറക്കുമതി ചെയ്ത ഉള്ളിക്ക് പുതുക്കിയ കരുതൽ ശേഖര പരിധി ബാധകമാകില്ലെന്ന് ഭക്ഷ്യ ഉപഭോക്തൃകാര്യ മന്ത്രി രാംവിലാസ് പസ്വാൻ പറഞ്ഞു

വരുന്ന രണ്ടു വർഷത്തിനുള്ളിൽ സുസ്ഥിരമായ വികസന തോത് ദൃശ്യമാകുമെന്നും പഠനം വിലയിരുത്തുന്നു ആഭ്യന്തര ആവശ്യകതയും ജനസംഖ്യാപരമായ വളർച്ചയും ഇതിന് കൂടുതൽ വേഗത നൽകുമെന്നും എസ് ആന്റ് പി യുടെ റിപ്പോർട്ടിൽ പറയുന്നു

പദ്ധതി നിലവിൽ വരുമ്പോൾ നഗര സഭകൾക്ക് മികച്ച സേവനങ്ങൾ നൽകാനാകും കേന്ദ്ര ധനകാര്യ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി സമീർകുമാർ ഖാരെയും എ

ബിയുടെ ഇന്ത്യ റസിഡന്റ് മിഷൻ ഡയറക്ടറായ കെനിച്ചി യോക്കോയാമയുമാണ് ന്യൂഡൽഹിയിൽ കരാറിൽ ഒപ്പുവച്ചത് ആമ്പൂർ തിരിച്ചിറപ്പള്ളി തിരുപ്പൂർ ഖ്ലെല്ലൂർ എന്നീ നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തുനങ്ങളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മധുര തിരുപ്പൂർ എന്നീ ന്ഗരങ്ങളുടെ ശുദ്ധജല വിതരണ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൂനുകൃപദ്ധതി ലക്ഷ്യമിടുന്നു

വനഭൂമി ചട്ടങ്ങൾ മറികടന്ന് സ്വകാര്യ കമ്പനിക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് വനംവകുപ്പിലെ രണ്ട് ഉദ്യോഗസ്ഥരെ പുറത്താക്കിയത് ഹോം ഗാർഡുകളുടെ ശമ്പളത്തിൽ തിരിമറി നടത്തിയതിന് ഹോം ഗാർഡ് ഡയറക്ടർ ജനറലിനെതിരെയും നടപടിയെടുത്തു

സർക്കിൾ തലത്തിൽ മൊബൈൽ നമ്പർ പോർട്ട് ചെയ്യുന്നതിനുള്ള അപേക്ഷകൾ അഞ്ച് പ്രവൃത്തി ദിവസത്തിനകം തീർപ്പാക്കണമെന്നും ട്രായ് ആവശ്യപ്പെട്ടു

അത്ലറ്റിക്സ് വോളിബോൾ ഷൂട്ടിങ് ടേബിൾ ടെന്നീസ് ഇനങ്ങളിലാണ് ഈ നേട്ടം കൈവരിച്ചത് ട്രാക്ക് ആന്റ് ഫീൽഡ് ഇനങ്ങളിൽ ഇന്ത്യ നാലു സ്വർണ്ണവും നാല് വെള്ളിയും രണ്ട് വെങ്കലവും ആദ്യ ദിനത്തിൽ സ്വന്തമാക്കി

ഇന്ത്യൻ പുരുഷ വിഭാഗം നേപ്പാളിനെയും വനിതാ വ്വിഭാഗ്ഗ്ര് ശ്രീലങ്കയെയുമാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത്